വേഗത്തിലാക്കാൻ ഗവൺമെന്റ് ആയ്കിരം അതിവേഗ കോടതികൾ സ്ഥാപിക്കും

സ്റ്റേഷനുകൾ അടച്ചു കോഴിക്കോട്ട് വീണ്ടും മാപ്പോയിസ്റ്റ് സാന്നിധൃം

സംഘത്തിൽപ്പെട്ട സ്ത്രീ ഉൾപ്പെടെ നാലുപേരെ തിരിച്ചുറിഞ്ഞു

മർദിച്ചുവെന്ന ആരോപണം അന്വേഷിക്കാൻ ഡി ജി പി യുടെ നിർദ്ദേശം

കോഴിക്കോട്ട് തുടക്കം

ഫൈനലിൽ ഇന്ത്യ ഇന്ന് സ്വീഡനെ നേരിടും

കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇതിലേക്കായി പോക്സോ കേസുകളിലും ബലാൽസംഗ കേസുകളിലും അതിവേഗം തീർപ്പ് കൽപ്പിക്കാനുള്ള പുതിയ പദ്ധതി കേന്ദ്ര നിയമ മന്ത്രാലയമാണ് ആവിഷ്ക്കരിച്ചത്

അടുത്ത ഫെബ്രുവരി ഏഴോടെ നിലപാട് അറിയിക്കാൻ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിലുള്ള ബഞ്ച് ആവശ്യപ്പെട്ടു

തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഡിജിറ്റൽ വൈദഗ്ദ്ധ്യമുള്ള യുവതയെ വാർത്തെടുക്കാനുമാണ് പദ്ധതിയെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഏഴംഗസംഘത്തിൽപെട്ട സ്ത്രീഉൾപ്പടെ നാല് പേരെ തിരിച്ചുറിഞ്ഞു പ്രദേശത്തെ ചായകടയിലെത്തിയ സംഘം പിന്നീട് ഒരു വീട്ടിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചാണ് മടങ്ങിയത് സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് അന്വേഷണം തുടങ്ങി

വൈകിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ദ്ഘാടനം നിർവഹിക്കും

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു

കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു പൌരത്വ നിയമ ഭേദഗതിയോടുള്ള എതിർപ്പ് തുടരുമെന്നും ഭേദഗതിയെ എതിർക്കുന്ന കക്ഷികളോട് രാഷ്ട്രീയ യോജിച്ചാണ് പാർലമെന്റിൽ നിലപാടെടുത്തതെന്നും ശ്രീ ഗൌഡ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു

സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചു

ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഡിജിപി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

ഹർത്താൽ ദിനത്തിൽ കൊല്ലത്ത് ദേശീയപാതയിലായിരുന്നു കുട്ടി സ്കൂട്ടർ ഓടിച്ചത് സംഭവം അറിഞ്ഞ് മോട്ടോർ പ്പാഹനവകുപ്പ് നടപടി സ്വീകരിക്കുകയായിരുന്നു

മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന അഞ്ച് ലക്ഷം രൂപയോളം മൂല്യം വരുന്ന മത്സ്യമാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഈഗിൾ ഐ സ്കാഡ് പിടിച്ചെടുത്തത് പുലർച്ചെ പട്ടം ജംഗ്ഷനു സമീപത്ത് വച്ചാണ് മൽസ്യം പിടികൂടിയത്

നഗരസഭയിൽ സെപ്റ്റേജ് മാലിന്യം ശേഖരിച്ച് സംസ്ക്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭയുടെ സ്മാർട്ട് ട്രിവാൻഡ്രം മൊബൈൽ ആപ്പ് വഴിയാണ് ബുക്കിംഗ് നടത്തേണ്ടത്

മഹാരാഷ്ട്ര മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ അഞ്ചു ദ്വിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് ഉൽഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്

പ്രതിയായ നടൻ ദിലീപ് എത്തിയിട്ടില്ല

എന്നാൽ ദൃശ്യങ്ങൾ ഒറ്റക്ക് കാണണമെന്നാണ് ദിലീപിന്റെ ആവശ്യം

മഠത്തിൽ നിന്നും പുറത്താക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് മാനന്തവാടി മുൻസിഫ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് നടപടി

ചൊവ്വാഴ്ച അവസാന റൌണ്ട് റോബിൻ മത്സരത്തിൽ ആതിഥേയരായ ഇന്ത്യ തായ്ലന്റിനെ പരാജയപ്പെടുത്തിയിരുന്നു

കുടുംബശ്രീ മിഷൻ മേള തദ്ദേശ സ്വയംഭരണ വകുപ്പ് നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വർഷംതോറും നടത്തുന്ന ദേശീയ സരസ് മേള നാളെ കണ്ണൂരിൽ ആരംഭിക്കും കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളജ് ഗ്രൌണ്ടിൽ വൈകുന്നേരം മന്ത്രി എ

മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ സൂക്ഷ്മ ചെറുകിട സംരംഭകരുടെ ഉത്പന്നങ്ങൾക്ക് രാജ്യത്തെമ്പാടും വിപണന സംവിധാനം ഒരുക്കുകയാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നത്